ഉൾനാടൻ ജലഗതാഗത് ടെർമിനലും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ബംഗളൂരുവിൽ സംസ്ക്കരിക്കും കർണാടകയിൽ മൂന്ന് ദിവസത്തെ ദുഖാചരണം

രാജൃം ഇന്ന് പൊതു പ്രക്ഷേപണ ദിനം ആഘോഷിക്കുകയാണ്

സ്വതന്ത്രവും സുതാര്യവും സമാഗ്രാനപരവുമായ വോട്ടെടുപ്പ് ഉറപ്പു വരുത്താനായി സംസ്ഥാനത്തുടനീളം വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തുടങ്ങിയത്

അതിനിടെ മധ്യപ്രദേശിലും മിസോറാമിലും പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന് പൂർത്തിയായി

ഇരട്ടിയായി വർദ്ധിച്ചിട്ടു ് രാജ്യത്ത് ശുദ്ധ ഇന്ധനം ഉല്പാദീപ്പിക്കാനും കാര്യക്ഷമമായി ഉപയോഗിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഗാർഹിക ശീതികരണ സംവിധാനത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതം അഞ്ചിരട്ടിയോളം കുറയ്ക്കാനുളള മത്സര സമ്മാനപദ്ധതിക്കും കേന്ദ്രമന്ത്രി തുടക്കമിട്ടു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

പുതിയ പാത യാഥാർത്ഥ്യമായതോടെ വാരണാസിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറയും ടൂറിസ്റ്റുകൾക്കും മറ്റ് സന്ദർശകർക്കും ഇത് ഏറെ പ്രയോജനപ്രദമായിരിക്കും ലോകബാങ്ക് സഹായത്തോടെ ജൽമാർഗ് വികാസ് പദ്ധതിക്ക് കീഴിൽ ഗംഗാനദിയിൽ നിർമ്മിക്കുന്ന നാലു മൾട്ടി ഒമാഡൽ ടെർമിനലുകളിൽ ആദ്യത്തേതാണ് ഇന്ന് ഉദ്ഘാടനം പ്രച്ചെയ്ത് പുതിയ ടെർമിനൽ സാഹിബ്ഗഞ്ച് ഹാൽദിയ ഗാസിപൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് മൂന്ന് ടെർമിനലുകൾ നിർമ്മിക്കുന്നത് ഇതോടൊപ്പം മറ്റ് നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രമന്ത്രിയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്നു ദിവസം ദുഖാചരണം നടത്തുകയാണ്

ഇപ്പോൾ വസതിയിലുള്ള ഭൌതിക ദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് നാളെ രാവിലെ ബംഗളൂരുവിലെ ബിജെപി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിനു വയ്ക്കും തുടർന്ന് പൊതു ജനങ്ങൾക്ക് ആദരാജ്ഞലി അർപ്പിക്കാനായി നാഷണൽ കോളേജ് ഗ്രൌ ിലേക്ക് കൊ ുപോകും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ഫിൻടെക് കോൺഫറൻസിന്റെ ്ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സമ്മേളനത്തിൽ പങ്കെടുക്കും ബുധനാഴ്ച്ച് പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും

ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിലെ വിവിധ വകുപ്പ് മേധാവികൾ മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും വാക്കത്തോണിൽ പങ്കെടുത്തു ഗാന്ധിയൻ ഫിലോസഫി പുരസ്കാര്യ്ക്കും ് പൊതു പ്രക്ഷേപണ പുരസ്കാരവും പ്രസാർഭാരതി സി ജ് ഒ് ശശിശേഖർ വെമ്പതി ചടങ്ങിൽ പ്രഖ്യാപിച്ചു

മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്

നാഗേശ്വർ റാവു കോടതിക്ക് സമർപ്പിച്ചു സുപ്രീംകോടതി മുൻ ജഡ്ജി എ കെ പട്നായിക്കിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ചീഫ് വിജിലൻസ് കമ്മീഷന്റെ അന്വേഷണം ഈ മാസം പത്താം തീയതി പൂർത്തിയായതായി സോളിസ്റ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു

ഇടക്കാല റിപ്പോർട്ടും താല്ക്കാലിക ഡയറക്ടർ നാഗേശ്വര റാവു ചുമതലയേറ്റ ശേഷം എടുത്ത തീരുമാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളുടെ റിപ്പോർട്ടും പരിഗണിച്ചശേഷമായിരിക്കും വെള്ളിയാഴ്ച്ച പരമോന്നത കോടതി കേസിൽ തീരുമാനം പറയുന്നത്

അടിസ്ഥാന സൌകര്യങ്ങൾ വർധിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ ആകർഷകമാക്കുന്നതാണ് ഗ്രീൻ കാർപറ്റ് പദ്ധതി തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ ടൂറിസം സംരംഭകർ വിദ്യാർത്ഥികൾ നാഷണൽ സർവ്വീസ് സ്കീം കുടുംബശ്രീ ശുചിത്വമിഷൻ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവന്തപുരത്ത് പറഞ്ഞു

തിരുവനന്തപുരത്ത് ഔദ്യോഗിക ഭാഷാ ഉന്നതത ലസമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സമിതി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി

ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരസ്ക്യിമ്യത്തി കിരൺ റിജിജുവും മൊറോക്കോ നീതിന്യായകാര്യ മിന്തി മുഹമ്മദ് ഔജ്ജറുമാണ് കരാറിൽ ഒപ്പിട്ടത്

ഭീകരർക്ക് ധനസഹായം നൽകുന്നത്ത്നെതിരായ നിയമ പ്രകാരം വസ്തുവകകൾ ക ്യൂഖ്കെട്ടാനും കരാറിൽ വ്യവസ്ഥയു ് ഭീകരവാദവും സംഘടിത കുറ്റകൃത്യങ്ങളും ഫലപ്രദമായി തടയുമെന്ന് ഇരുരാജ്യങ്ങളും വൃക്തമാക്കി

ര ാം സ്വീഡ് ജാപ്പനീസ് താരം അക്കാനേ യമാഗുച്ചിയെ സൈന നെഹ്വാൾ നേരിടും

രാജ്യത്തെ പുരാതന ആഘോഷങ്ങളിലൊന്നായ ഛാട്ട് പൂജയിൽ സൂര്യഭഗവാനെയാണ് ആരാധിക്കുന്നത് പുഴകൾ തടാകങ്ങൾ തുടങ്ങിയ ജലസോത്രസ്സുകൾ മലിനരഹിതമായി കാത്തു പരിപാലിക്കാൻ പൌരൻമാർ പ്രതിജ്ഞ എടുക്കണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു

അബുദാബിയിൽ നടന്ന ഊർജ്ജ സമ്മേളനത്തിൽ സൌദി ഊർജ്ജ മന്ത്രി ഖാലിദ് അൽ ഫാലിഹാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്